കരിഞ്ചന്തയിൽ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ

കേരളത്തിന്റെ വിപ്തവ വനിത കെ

ദീപ്ത സ്മരണ

വാക്സിനേഷൻ സ്ഥിതി സംബന്ധിച്ച് കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൻ ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി ആശയവിനിമയം നടത്തി

എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്നതാണ് രണ്ടാം ഡോസ് എടുക്കുന്നതിനുള്ള സ്തോട്ട് ബുക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യം കോ വിൻ പോർട്ടലിൽ ഉടൻ ലഭ്യമാക്കുമെന്ന് വാക്സിനേഷൻ വിദഗ്ധ്യ സമിതി അംഗം ഡോക്ടർ ആർ എസ് ശർമ അറിയിച്ചു

വാക്സിന് പുറമെ മറ്റു പ്രതിരോധ മരുന്നുകളും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന നടപടി പുരോഗമിക്കുകയാണെ ന്നും കേന്ദ്രം അറിയിച്ചു

രോഗമുക്തരാകുന്നവരുടെ എണ്ണവും വർധിക്കുന്നുണ്ട്

പ്രതി ദിനം മൂന്ന് ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തരാകുന്നത്

കോവിഡ് പകർച്ചവ്യാധിക്കെതിരായ പിന്തുണയിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി കേന്ദ്രസർക്കാറിനും ഭാരതീയ ജനതയ്ക്കും നന്ദി അറിയിച്ചു പകർച്ചവ്യാധിക്കെതിരായ ഭൂട്ടാന്റെ പോരാട്ടം കൈകാര്യം ചെയ്യുന്നതിൽ രാജാവിന്റെ നേതൃത്വത്തെ ശ്രീനരേന്ദ്രമോദി അഭിനന്ദിച്ചു

മലപ്പുറം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്

കേന്ദ്രവിഹിതം കൂടി ലഭിച്ചാൽ വലിയ ഓക്സിജൻ ക്ഷാമം ഉണ്ടാവില്ലെന്നും മന്ത്രി വാർത്താ ലേഖകരോട് പറഞ്ഞു

ഹൈദരാബാദിൽ നടന്ന തെലങ്കാന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം

ആർ ഗൌരിയമ്മ ഇനി ദീപ്ത സ്മരണ ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിലെ അഗ്നിനാളങ്ങൾ കെ ആർ ഗൌരിമ്മയുടെ ഭൌതികശരീരം ഏറ്റുവാങ്ങിയതോടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഏടാണ് നഷ്ടമായത് കണ്ണീരിൽ കുതിർന്ന മുദ്രാവാക്യം വിളികളോടെയാണ് ജൻമനാട് വിപ്ത വനായികക്ക് വിട നൽകിയത് പല വട്ടം മന്ത്രിയും എം

അണുബാധയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്ഥകാര്യ ആശുപത്രിയിൽ രാവിലെ ഏഴ് മണിക്കായിരുന്നു അന്ത്യം അയ്യൻകാളി ഹാളിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വെക്കാനായി സർക്കാർ കൊവിഡ് പ്രോട്ടോക്കോ ളിലും മാറ്റം വരുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

പിന്നീട് ആലപ്പുഴ എസ്ഡിവി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചപ്പോഴും നിരവധി പേർ ആദരമ്മർപ്പിച്ചു് തുടർന്നായിരുന്നു ആലപ്പുഴ യിലെ വലിയ ചൂടുകാട്ടിൽ അവരുടെ അവസാനത്തെ ആഗ്രഹപ്രകാരം സംസ്കാരിച്ചത്

കോവിഡ് ബാ ധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മാടമ്പ് വിട പറഞ്ഞത് വേലൂർ കിരാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോ ടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്

ന്യൂനമർദ ത്തിന്റെ സഞ്ചാരപഥത്തിൽ കേരളം കല്ലെങ്കിലും കടലാക്രമണവും തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴക്കും കാറ്റിനും സാധ്യതയുണ്ട്

ഇടുക്കിമലപ്പുറം ജില്ലകളിൽ ഇന്നും ഇടുക്കിയിൽ നാളെയും യെല്ലോ അലർട്ടാണ്

ശിശുസംരക്ഷണ സേവനങ്ങൾക്കാ യുള്ള പദ്ധതി പ്രകാരം കുട്ടികൾക്ക് നൽകുന്ന വൈദ്യസഹായത്തിനു പുറമേയാണിത്

തൊഴിലാളികൾക്ക് കരാറുകാരൻ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്

സി ആർ പരിശോധന നടത്തുന്നതിന് പ്രത്യേകം സൌകര്യങ്ങളും ഐസൊലേഷൻ സൌകര്യവും മറ്റു വൈദ്യസഹായങ്ങളും തൊഴിലിട ത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു

പി ദേശീയ അധ്യക്ഷൻ ജെ

ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിക്ക് കത്തെഴുതി